ത അൺലോക്ക് മൂന്നാംഘട്ടത്തിലെ മാർഗ്ഗ നിർദ്ദേശങ്ങൾ നിലവിൽ വന്നു

ത വന്ദേഭാരത് അഞ്ചാംഘട്ടത്തിന് ഇന്ന് തുടക്കം ത സർവ്വീസ് നിർത്തിവെച്ച ബസ്സുടമകളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ത സ്വർണ്ണക്കടത്ത് കേസിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ആർ

എസ് ബന്ധത്തിന്റെ പേരിൽ കോടിയേരി ബാലകൃഷ്ണൻ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വാർത്തകൾ വിശദമായി നാലാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോണിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് അഭിസംബോധന ചെയ്യും കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചും പ്രധാനമന്ത്രി വിശദീകരണം വൈകിട്ട് നൽകിയേക്കും

ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് സാങ്കേതിക പരിഹാരം നിർദ്ദേശിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനുവേണ്ടി ആവിഷ്കരിച്ച രാജ്യവ്യാപക സംരംഭമാണ് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തൺ

ഹാക്കത്തണിന്റെ ഗ്രാന്റ് ഫിനാലെ തിങ്കളാഴ്ച നടക്കുമെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊഖ്രിയാൽ അറിയിച്ചു

രമേ അൺലോക്ക് മൂന്നാം ഘട്ടത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകൾക്ക് പുറത്ത് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുന്ന മാർഗ്ഗ നിർദ്ദേശങ്ങൾ നിലവിൽ വന്നു

സംസ്ഥാനത്തിനകത്തെ യാത്രകൾക്കും അന്തർ സംസ്ഥാന യാത്രകൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് ആരോഗ്യ മന്ത്രാലയം ബുധനാഴ്ച പുതിയ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്

സാമൂഹിക അകലവും മറ്റ് ആരോഗ്യ പ്രോട്ടോകോളുകളും പാലിച്ച് സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്താം

മെട്രോ റെയിൽ സിനിമാ ശാലകൾ നീന്തൽ കുളങ്ങൾ വിനോദ പാർക്കുകൾ ബാറുകൾ എന്നിവയും പ്രവർത്തിക്കില്ല

സാമൂഹ്യ രാഷ്ട്രീയ കായിക പരിമിതമായി പരിപാടികളും മത സാംസ്ക്കാരിക പരിപാടികളും ഉൾപ്പെടെ വൻതോതിൽ ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾക്കും അനുമതിയില്ല

ദേദ മലപ്പുറം ജില്ലയിൽ ഒരു കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു പെരുവള്ളൂർ സ്വദേശി കോയാമു ആണ് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ രാവിലെ പത്തരയോടെ മരിച്ചത്

അന്ന് തന്നെ കോവിഡും സ്ഥിരീകരിച്ചിരുന്നു

പി അജിതനാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്

ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു പൊലീസ് ഉദ്യോഗസ്ഥൻ കോവിഡ് ബാധിച്ച് മരിക്കുന്നത്

അതേസമയം വെളിയത്തെ എട്ടാം വാർഡിനെയും പനയം പടിഞ്ഞാറെ കല്ലട പഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളെയും കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങളിൽനിന്ന് ഒഴിവാക്കി രേര കണ്ണൂർ ജില്ലയിലെ മൽസ്യ മാർക്കറ്റുകളിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നാളെ വരെ തുടരുമെന്നു ജില്ലാ കലക്ടർ അറിയിച്ചു

കൂടുതൽ പൊലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെത്തുടർന്നാണ് നടപടി തിരുവനന്തപുരത്തെ പൊലീസ് ആസ്ഥാനം രണ്ട് ദിവസത്തേക്ക് അടച്ചിരിക്കുകയാണ് അണുനശീകരണത്തിന് ശേഷം ആസ്ഥാനം തുറക്കും ദേശ പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യത്തിന്റെ അഞ്ചാം ഘട്ടത്തിന് ഇന്ന് തുടക്കം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് ഇന്ന് ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എത്തും

ബാലഗംഗാധര തിലകിന്റെ ബുദ്ധി ധൈര്യം നീതിബോധം സ്വരാജ് എന്ന ആശയം എല്ലാം എന്നും ഏവരേയും പ്രചോദിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു സ്വയംഭരണം പൌരന്റെ ജന്മാവകാശമാണെന്ന് വിശ്വസിച്ച് അതിനായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് തിലകെന്ന് പ്രകാശ് ജാവ്ദേക്കർ അനുസ്മരിച്ചു ദേദ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നാല് സംസ്ഥാനങ്ങളിൽ കൂടി ഇന്ന് പ്രാബല്യത്തിൽ വന്നു

രാജ്യത്തെ ഏത് റേഷൻ ഷോപ്പിൽ നിന്നും ഉപഭോക്താക്കൾക്ക് റേഷൻ ഉല്പന്നങ്ങൾ വാങ്ങാവുന്നതാണെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ അറിയിച്ചു

സർവ്വീസ് നിർത്തിവെച്ച സ്വകാര്യ ബസ്സുടമകളുമായി ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ട് അറിയിച്ചു സർവ്വീസ് നിർത്തുന്നതിന് മുമ്പ് ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബസ്സുടമകൾ തയ്യാറാവണമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ബസ് വ്യവസായം സംരക്ഷിക്കാൻ ഗവൺമെന്റ് പരമാവധി സഹായം നൽകിയിട്ടുണ്ട് ബസ് സർവ്വീസ് നിർത്തുന്നതോടെ യാത്രക്കാർ പൊതു ഗതാഗത സംവിധാനങ്ങൾ ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നും അത് വേണോ എന്ന് ബസ്സുടമകൾ തീരുമാനിക്കണമെന്നും മന്ത്രി പറഞ്ഞു

കോവിഡ് ആശങ്കയിൽ യാത്രക്കാരുടെ കുറവ് മൂലം മിക്ക റൂട്ടുകളിലും പരിമിതമായ സർവ്വീസുകൾ മാത്രമാണ് നടക്കുന്നത് ദേദ സ്വർണ്ണക്കടത്ത് കേസിൽനിന്ന് ജനശ്രദ്ധ തിരിയ്ക്കുന്നതിന് വേണ്ടിയാണ് ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ബി ജെ

പുതിയ സർ സംഘ് ചാലകിനെ കോൺഗ്രസ്സിൽ നിന്ന് ആർ

സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി നേതാവ് ഒ രാജഗോപാൽ നടത്തുന്ന ഉപവാസ സമരത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുകയായിരുന്നു കെ സുരേന്ദ്രൻ രുമ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണയ്ക്ക് കൂടുതൽ സമയം ആവശ്യപ്പെട്ട് വിചാരണാ കോടതി ജഡ്ജി സുപ്രീം കോടതിയെ സമീപിച്ചു ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ മൂന്നുമാസം കൂടി സമയം നൽകണമെന്നാണ് ഹർജിയിലെ ആവശ്യം നേരത്തെ ആറുമാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു രദേ സുസ്ഥിര വികസന മാത്വകകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി വെബിനാർ ഇന്ന് ഉച്ചകഴിഞ്ഞ് നടക്കും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഹരിത കേരള മിഷനും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് ടാക്സേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് വിവിധ മാർഗ്ഗങ്ങൾ അവലംബിച്ച് ജൈവമാലിന്യ സംസ്കരണം നടത്തുകയും മറ്റ് സ്ഥാപനങ്ങൾക്ക് അനുകരിക്കാനാവും വിധം വിജയ മാതൃകകളാവുകയും ചെയ്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ അവതരണമാണ് വെബിനാറിലെ പ്രധാന ഉള്ളടക്കം